തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്ലാസ്റ്റിക് ഫ്ളക്സ് ബോർഡുകൾ ഉപയോഗിക്കരുതെന്ന് കേരള ഹൈക്കോടതി

ജമ്മുകാശ്മീരിൽ ഉ ായ ഏറ്റുമുട്ടലിൽ പുൽവാമ ഭീകരാക്രമണത്തിലെ മുഖ്യസൂത്രധാരൻ മുദാസിർ ഖാൻ കൊല്ലപ്പെട്ടു

വായ്പാതട്ടിപ്പു കേസിൽ നീരവ് മോദിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു

വിഖ്യാത മലയാള നടൻ മോഹൻലാൽ വിഖ്യാത പത്രപ്രവർത്തകൻ കുൽദീപ് നയ്യാർ പ്രശസ്ത നടൻ കാദർ ഖാൻ അകാലിദൾ നേതാവ് സുഖ്ദേവ് സിംഗ് ധിൻഷാ അടക്കമുള്ളവർക്ക് പുരസ്കാരം സമ്മാനിച്ചു കാദർ ഖാന് പത്മശ്രീയും കുൽദീപ് നയ്യാർക്ക് പത്മഭൂഷണും മരണാനന്തര ബഹുമതിയായാണ് സമ്മാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി എം

ആർക്കിയോളജിസ്റ്റ് ദിലീപ് ചക്രവർത്തി ഹേമറ്റോളജിസ്റ്റ് മാമൻ ചാ ി സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ എന്നിവരും ഇന്ന് പുരസ്ക്കാരം ഏറ്റുവാങ്ങി

ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലാണ് പദ്ധതികൾ ആവിഷ്ക്കരിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

സംയുക്ത പങ്കാളിത്തത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത് ഗതാഗത രംഗത്തെന്ന പോലെ വിജ്ഞാനത്തിന്റെ മേഖലയിലും പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാൻ കഴിയും ജലശുചീകരണ പദ്ധതി ആയിരക്കണക്കിന് കൂടുംബങ്ങളിൽ കൂടിവെള്ളമെത്തിക്കും

ഷെയ്ക് ഹസീനയുമായുള്ള ആറാമത്തെ വീഡിയോ കോൺഫറൻസാണിത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തെരഞ്ഞെടുപ്പ് സമയ ക്രമത്തിൽ ഒരു മാസം പുർണ്ണമായി ഒഴിവാക്കാനാവില്ല പ്രധാന ആഘോഷ ദിനങ്ങളും വെള്ളിയാഴ്ചകളും വോട്ടെടുപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമു ് ത്രിണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് ഇത് സംബന്ധി് വിമർശനം ഉന്നയിച്ചത്

കോൺഗ്രസാണ് കമ്മീഷനെ ദുർബ്ബലപ്പെടുത്തിയിട്ടുള്ളതെന്ന് ശ്രീ രവിശങ്കർ പ്രസാദ് ആരോപിച്ചു

ജില്ലകളിൽ ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നടപടി എടുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടു ഇതുസംബന്ധിച്ച് നാളെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ച നടത്തും

ക്രിമിനൽ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി മൂന്നു തവണ പത്ര പരസ്യം ചെയ്യണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു

പരിസ്ഥിതി സൌഹൃദപരമായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും കോടതി നിരീക്ഷിച്ചു ജീർണ്ണിക്കുന്ന വസ്തുക്കൾ മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ ഇത് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

പൊതൂത്തെർഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തീയതീക്കൾ പ്രഖ്യാപിക്കാത്ത തീരുമാനത്തെ പാർട്ടി ചോദ്യം ചെയ്തു പൊത്തു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്ന സുരക്ഷാ സാഹചര്യമാണെങ്കിൽ എന്തുകൊ ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്നില്ലെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആരാഞ്ഞു

കേന്ദ്ര ഭരണത്തിനു കീഴിലാണ് നിലവിൽ ജമ്മുകാശ്മീർ

സമ്മതിദായകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം പോളിംഗ് ബൂത്തിൽ എത്താൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രൺബീർ സിംഗ് അറിയിച്ചു

ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ പ്രിങ്ക്ളിഷ് പ്രവിശ്യയിലെ ത്രാൽ സബ്ഡിവിഷനിൽ സുരക്ഷാ സേനയുമായു ായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരർ ക്ട്രിറ്ലപ്പെട്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിലെ മുഖ്യസ്യൂത്ധാർൻ മുദാസിർ ഖാൻ ഇതിലുൾപ്പെടും

ജെയ്ഷ് ഇ് മുഹമ്മദ് സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗ്വും

മുംബൈയിലെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതെന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചു

കഴിഞ്ഞ വർഷം മേയിലാണ് നീരവ് മോദിക്കെതിരെ വായ്പാ തട്ടിപ്പു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്

എക്സ്

ബി ഐ

വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ജസ്റ്റീസ് സുനിൽ ഗൌർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയൽ മാറ്റി

ബി ഐ ചിദംബരത്തിനെതിരെ എഫ്

രജിസ്റ്റർ ചെയ്തത്

ചെന്നൈയിലെ ദേനാ ബാങ്ക് സമർപ്പിച്ച പരാതിയിന്മേലാണ് സിബിഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് വ്യാജ കമ്പനികളുടെ പേരിലാണ് പണമിടപാട് നടത്തിയിട്ടുള്ളതെന്ന് എഫ് ഐ ആറിൽ പറയുന്നു

കേസ് വിശാല ഭരണഘടനാ ബഞ്ചിന് വിടണമെന്ന ആവശ്യവും പരമോന്നത കോടതി ഇന്ന് പരിഗണിച്ചില്ല

ഹർജി സംബന്ധിച്ച് കോടതിയിൽ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുതകളെ പറ്റി ലഘു കൂറിപ്പ് സമർപ്പിക്കാൻ ഹർജ്ജിക്കാരന്റെ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടു

്ര ചികിത്സ വിദ്യാഭ്യാസം എന്നീകാര്യങ്ങൾക്ക് മാലി ദ്വീപ് പൌരൻമാർക്ക് ഇത് പ്രയോജനം പുതിയ നിയ്മപ്രകാരം മാലിദ്വീപിലെ ചെയ്യും

മാലിദ്വീപിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് അടിയന്തിര ചികിത്സക്കായി ഇന്ത്യയിൽ കഴിയാനാവും

ഇന്ന് വിധി പറയാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് കേസിൽ പുതിയ തെളിവ് സമർപ്പിക്കാനു ന്ന അവകാശവുമായി പാകിസ്ഥാനി വനിത മുന്നോട്ട് വന്ന സാഹചരൃത്തിലാണ് വിധി പ്രസ്താവം മാറ്റി വെച്ചത് കേസിലെ അന്തിമവാദം ഈ മാസം ആറിന് പൂർത്തിയായിരുന്നു

രക്തപ്രവാഹം നിയന്ത്രിക്കുന്നതിന് സഹായകരമായ മരുന്നിന്റെ ക െ ത്തൽ ഉയർന്ന മേഖലകളിൽ വെച്ചോ കാടുകളിൽ വെച്ചോ മുറിവേൽക്കപ്പെടുന്ന സൈനികർക്ക് വളരെ സഹായകരമാകുമെന്ന് ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു പുൽവാമയിൽ അടുത്തിടെയു ായ ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഈ മരുന്ന് ഉപയോഗിച്ച് കുറയ്ക്കാമായിരുന്നുവെന്ന് ഡി ആർ ഡി ഒ അഭിപ്രായപ്പെട്ടു കൃത്യമായ പ്രാഥമിക ശുശ്രൂക്ഷ നൽകുകയാണെങ്കിൽ അംഗവൈകല്യങ്ങൾ കുറയ്ക്കാനും അതിജീവന സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് മരുന്ന് ഉല്പാദകർ പറഞ്ഞു

മൂന്നുമാസത്തോളിം സ്കൂളുകൾക്ക് അവധിയായിരുന്നു ഡിസംബറിൽ അടച്ച സ്കൂളുകൾ ഈ മാസം അഞ്ചിനായിരുന്നു തുറക്കേ ിയിരുന്നത്